സംസ്ഥാനം മാത്രമനുവദിച്ച് അവശ്യ സ്തുക്കൾ എല്ലാവർക്കും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി

രാജ്യത്ത് ഇന്നും നാല് ലക്ഷത്തിലധികം കോവിഡ് രോഗികൾ വാക്സിൻ യജ്ഞം പുരോഗമിക്കുന്നു

തമിഴ്നാടിനെ ഇനി എംകെ സ്റ്റാലിൻ നയിക്കും

എന്നാൽ ആവശ്യസേവങ്ങൾക്ക് മുടക്കമുണ്ടാവില്ലെന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി

എന്നാൽ ഈ വിവരം മൂൻകൂട്ടി പോലീസ് സറ്റേഷനിൽ അറിയിക്കുകയും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി കോവിഡ് കേരളം കേരളത്തിൽ ഇന്നലെ കോവിഡ് ബാധിതരുടെ എണ്ണം നാൽപതിനായിരം കടന്നു

സി സംസ്ഥാനം അടച്ചുപൂട്ടുമ്പോൾ പതിവ് കെ എസ് ആർ ടി സി സേവനങ്ങൾ ഉണ്ടാകില്ല

അതേസമയം ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യൂർ പ്പർിഗണിച്ച് ഇന്ന് രാത്രിവരെ പരമാവധി സർവ്വീസ് നടത്തുമെന്ന് ൻിഎംഡി ബിജുപ്രഭാകർ പറഞ്ഞു

തിക്കുംതിരക്കും ആൾക്കൂട്ടവും ഉാകാതിരിക്കാൻ പോലീസ് പരിശോധനകളും പട്രോളിങും ശക്തമാക്കും

നേരിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിലാവുകയും ചിട്ടയായ വൈദ്യസഹായം തേടുകയും വേണമെന്ന് സാമൂഹൃ സുരക്ഷ റീജണൽ ഡയറക്ടർ ഡോ ഡയാനാ സി ജി

എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ ആസ്ഥാനവുമായ ജർമ്മനി ഈ ആശയം നിരസിച്ചു

പുതുക്കിയ ടൈംടേബിൾ സർവകലാശാല വൈബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും കെ ടെറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് ഓൺലൈൻ ആയി അപേക്ഷിക്കാനുളള തീയതി നീട്ടി

വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു

ഇന്നലെ നടന്ന സി

എം സി

ഐ ഉഭയകക്ഷി ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായെന്നാണ് സൂചന

മന്ത്രിമാരുടെ കാര്യത്തിൽ എൽ

എഫ് യോഗത്തിലാവും തീരുമാനം ഉണ്ടാവുക

ദാനധർമ്മങ്ങൾക്കും സക്കാത്തിനും വിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദിനങ്ങളാണ് റംസാനിലെ അവസാന പത്തുദിനങ്ങൾ കാർഗിൽ ജമ്മു കാശ്മീരിലെ കാർഗിലിൽ മഞ്ഞിടിച്ചിലിൽ അകപ്പെട്ട് മരിച്ച സൈനികൻ സി

കെ അധ്യക്ഷൻ എം

ഒരു ദശാബ്ദത്തിനു ശേഷമാണ് തമിഴ്നാട്ടിൽ ഡ്ി

കെ അധികാരത്തിലെത്തുന്നത്

ചേളാരിയിൽ നിന്നെത്തിയ ഐ ഒ സി സംഘത്തിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ടാങ്കറിലേക്ക് ആണ് വാതകം മാറ്റിയത് ഇന്നലെ ഉച്ചയ്ക്കാണ് മംഗലാപുരത്ത് നിന്ന് വരികയായിരുന്ന ടാങ്കർ ലോറി ചാല ജങ്ക്ഷനിൽ മറിഞ്ഞത്

പാലക്കാട്ടെ വ്ട്ടിട്ടിൽ നിന്നുമാണ് ആലപ്പുഴ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത്ത് ക്രിശീവൽസം ഗ്രൂപ്പിൽ നിന്നും ഒരു കോടി രൂപ തട്ടിയെടുത്തു് എന്നാണ് കേസ്